ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചു സുരക്ഷാ പരി ശോധന കർശനമാക്കി ജനുവരി ഒന്നിന് രൂപീകരിക്കുന്ന വനിതാ മതിലിന് ജില്ലകളിൽ സംഘാടക സമിതി രൂപീകരണം പൂർത്തിയായി തപാൽ വകൂപ്പിലെ ഗ്രാമീൺ ഡാക് സേവക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്ക് തുടങ്ങും

ൾ ൽ ൾ മൊബൈൽ ഫോൺ കണക്ഷനും ബാങ്ക് അക്കൌണ്ടിനും ആധാർ നമ്പർ ഉപയോഗിക്കുന്നതിൽ വ്യക്തത കൈവരുത്തുന്ന നിയ മഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി അനുമതി നൽകി ഇത്തരം സേവനങ്ങൾക്ക് ആധാർ നമ്പർ സ്വമേധയാ പങ്ക്വെക്കാൻ അനുവദിക്കുന്ന തരത്തിലായിരിക്കും ഭേദ ഗതി ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടും കള്ളപ്പണ ഇടപാട് തടയുന്ന നിയ മവും ഇതിനായി ഭേദഗതി ചെയ്യും മൊബൈൽ സിം ബാങ്ക് അക്കൌണ്ട് സേവനങ്ങൾക്ക് ആധാർ നമ്പർ ഉപയോഗിക്കുന്നത് വിലക്കി സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു

തമിഴ്നാട്ടിലും കർണ്ണാ ടകയിലും ഓരോ എയിംസ് കേന്ദ്രങ്ങൾ തുടങ്ങാനും യോഗത്തിൽ തീരുമാനിച്ചു പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പാചക വാതക കണക്ഷൻ നൽകുന്ന പ്രധാനമന്ത്രി ഉജ്ജൽ യോജന വിപുലീകരിക്കാനും മന്ത്രിസഭ അനു മതി നൽകി റഫേൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ബിജെപിയും കോൺഗ്രസും അവകാശ ലംഘന പ്രമേയങ്ങൾക്ക് നോട്ടീസ് നൽകി റഫേൽ ഇടപാടിനെ പറ്റി അടിസ്ഥാനരഹിതമായ വിവരങ്ങൾ നൽകി ലോക്സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാ രോപിച്ച് ബിജെപി എംപി അനുരാഗ് താക്കൂറാണ് രാഹുൽ ഗാന്ധി ക്കെതിരെ നോട്ടീസ് നൽകിയത് പ്രധാനമന്ത്രി സുപ്രീം കോടതിയിൽ തെറ്റിദ്ധാരണാജനകമായ രേഖകൾ നൽകിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് ലോക്സഭയിൽ അവകാശ ലംഘന പ്രമേയ നോട്ടീസ് നൽകിയത് കോൺഗ്രസ് നേതാ ക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ കെ

വേണുഗോപാൽ എന്നിവ രാണ് പ്രമേയ നോട്ടീസ് സ്പീക്കർക്ക് കൈമാറിയത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദിനെതിരെയും ഇതേ വിഷയത്തിൽ പ്രമേയത്തിന് നോട്ടീസ് നൽകി അറ്റോർണി ജനറലിനെതിരെ ആർജെ ഡിയിലെ മനോജ് ഝായും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി യിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു രാജസ്ഥാനിൽ അശോക് ഗലോ ട്ടൂം മധ്യപ്രദേശിൽ കമൽനാഥും ചത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗേലുമാണ് പുതിയ മുഖൃമന്ത്രിമാർ മൂന്നിടത്തും നേരത്തെ ബിജെ പിയായിരുന്നു ഭരണത്തിൽ

ഇന്നും ഒട്ടേറെ സർവ്വീസുകൾ റദ്ദാക്കാനിടയുണ്ടെന്നാണ് സൂചന പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം ഇന്ന് സമർപ്പിക്കണ മെന്ന് ഹൈക്കോടതി കെഎസ്ആർടിസിക്ക് നിർദ്ദേശം നൽകിയിരു ന്നു പിഎസ്സി വഴി റിസർവ് കണ്ടക്ടറായി തെരഞ്ഞെടുത്തവർക്ക് നിയമനത്തിന് ഉത്തരവ് അയക്കാനും നടപടി തൂടങ്ങിയിട്ടുണ്ട് ശബരിമലയിൽ തീർത്ഥാടനത്തിരക്ക് തുടരുന്നു ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോൾ ദർശനത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു ഇതോടെ വെർച്ചൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിനെത്തുന്നവർക്ക് പ്രത്യേക നിര ഏർപ്പെടുത്തി

ഇലവുങ്കലിലും നിലയ്ക്കലിലും എല്ലാ വാഹ നങ്ങളും പരിശോധിച്ച ശേഷമാണ് കടത്തി വിടുന്നത് ദർശനം തേടി യുവതികൾ എത്തിയാൽ നിയമം പാലിച്ച് മുന്നോട്ട് നീങ്ങാനാണ് പൊലീസ് തീരുമാനം ബലം പ്രയോഗിച്ച് ആരെയും സന്നിധാനത്ത് എത്തിക്കേണ്ടെന്ന നിലപാടാണ് പൊലീസ് സ്വീകരിച്ചിരിക്കുന്നത് ശബരിമലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരോധനാജ്ഞ ഇന്ന് അർദ്ധ രാത്രി വരെ തുടരും ശബരിമല ദർശനത്തിന് അനുമതി ലഭിച്ച നാല് ട്രാൻസ്ജെൻഡ റുകൾ ഇന്ന് സന്നിധാനത്തെത്തിയേക്കും

ട്രാൻസ്ജെൻഡറുകൾക്ക് ദർശനത്തിനെത്താൻ ആചാരപരമായ തടസമില്ലെന്ന് തന്ത്രിയും പന്തളം കൊട്ടാരവും അറിയിച്ചിരുന്നു

പാർട്ടി നേതാവ് സി

പത്മനാ ഭനാണ് കഴിഞ്ഞ എട്ടുദിവസമായി സത്യഗ്രഹമനുഷ്ഠിക്കുന്നത് അദ്ദേ ഹത്തിന്റെ സത്യഗ്രഹം ഇന്ന് ഒമ്പതാം ദിവസത്തേക്ക് കടന്നു ജനുവരി ഒന്നിന് രൂപീകരിക്കുന്ന വനിതാ മൃതിലിന് ജില്ലകളിൽ സംഘാടക സമിതികളായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ യോഗങ്ങൾ പുരോഗമിക്കുകയാണ് ഓരോ ജില്ലയിൽ നിന്നും പങ്കെ ടുക്കേണ്ട സ്ത്രീകളുടെ എണ്ണവും അവർ അണിനിരക്കേണ്ട സ്ഥല ങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു

സാമുഹൃ പരിഷ്ക്കരണം ശക്തിപ്പെടുത്താനും നവോത്ഥാന മൂലൃ ങ്ങൾ സംരക്ഷിക്കാനുമാണ് വനിതാ മതിലെന്ന് മന്ത്രി ഇ

ജാതിയുടെ പേര് പറഞ്ഞ് വനിതാ മതിലിനെ ദുർബലപ്പെ ടുത്താനാവില്ലെന്നും മന്ത്രി വയനാട് പനമരത്ത് പറഞ്ഞു

മാധ്യമ പ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടു ത്തുന്നതാണ് ഉത്തരവെന്ന് ഗിൽഡ് വാർത്താകുറിപ്പിൽ കുറ്റപ്പെടുത്തി തപാൽ വകുപ്പിലെ ഗ്രാമീണ ഡാക് സേവക് ജീവനക്കാർ ഇന്ന് രാജ്യവൃാപകമായ പണിമുടക്ക് ആരംഭിക്കും കമലേഷ് ചന്ദ്ര കമ്മീ ഷൻ റിപ്പോർട്ടിലെ വൃവസ്ഥകൾ നടപ്പാക്കാതെ ജീവനക്കാരെ വഞ്ചിച്ചു എന്നാരോപിച്ചാണ് പണിമുടക്ക് നാഷണൽ യൂണിയൻ ഓഫ് ഗ്രാമീണ് ഡാക് സേവകും ഓൾ ഇന്ത്യ ഗ്രാമീണ ഡാക് സേവക് യൂണിയനും സംയുക്തമായി പണിമുടക്കുന്നത് കണ്ണൂർ കീഴാറ്റൂരിലെ ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിൽ കേന്ദ്രഗവൺമെന്റ് തീരുമാനിച്ച അലൈൻമെന്റ് സംസ്ഥാനം അംഗീ കരിക്കുകയായിരുന്നുവെന്ന് മന്ത്രി ജി

ഇത് സംബന്ധിച്ച് മൂന്നാഴ്ച്ച മുൻപ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയ ത്തിൽ നിന്ന് കത്ത് ലഭിച്ചു കീഴാറ്റൂർ വഴി തന്നെ ബൈപ്പാസ് നിർമ്മി ക്കാനാണ് നിർദേശം അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം നൽകിയ നിവേദനം തള്ളി യതായും കത്തിലുണ്ടെന്ന് മന്ത്രി കണ്ണൂർ ജില്ലയിലെ റോഡ് നവീക രണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പറഞ്ഞു

ഹനുമ വിഹാരിയും ഋഷഭ് പന്തുമാണ് ക്രീസിൽ ന്യൂഡൽഹിയിൽ ദേശീയ സ്കൂൾ ജൂനിയർ അത്ലറ്റിക്സിൽ കേരളത്തിന് ഒരു സ്വർണം കൂടി പെൺകുട്ടികളുടെ ഹൈജംപിൽ കെ എച്ച് സാലി ഹയാണ് ഇന്നലെ സ്വർണം നേടിയത് പോൾവോൾട്ടിൽ അരതി

വെസ്റ്റ് ഗോദാവരിയിൽ സമാപിച്ച ദേശീയ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് കിരീടം ആൺകുട്ടികളുടെ വിഭാഗ ത്തിൽ മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക ഡൽഹി ഹരിയാന പഞ്ചാബ് ടീമുകളെയാണ് കേരളം തോൽപ്പിച്ചത് റേഷൻകടകളിൽ കൃത്യതയ്ക്കായി ഇ പോസ് ഉപകരണങ്ങളു മായി ത്രാസുകളെ ബന്ധിപ്പിക്കുമെന്ന് മന്ത്രി പി

റേഷൻ കടകളിലെ അഴിമതി ഇല്ലാതാക്കാൻ എൽഡിഎഫ് ഗവൺമെന്റിന് കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു

പാലക്കാട് കാവശ്ശേരിയിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്യുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ജന സംഖ്യയിൽ ആറിലൊന്ന് വയോജനങ്ങളാണ്

ഈ സാഹ ചര്യത്തിൽ വയോജന സംരക്ഷണം പ്രധാനമാണെന്ന് മന്ത്രി പറഞ്ഞു

മൊയ്തീൻ നിർദേശം നൽകി പാലക്കാട് ചക്കാംതറയിൽ വാർഷിക പദ്ധതി നിർവഹണ പുരോഗതി അവലോകന യോഗത്തിൽ സംസാ രിക്കുകയായിരുന്നു മന്ത്രി

വാഹന പെരുപ്പവും സ്ഥല പരിമിതിയും കണക്കിലെടുത്ത് ഓരോ നഗരത്തിനും പ്രത്യേക വാഹന പാർക്കിങ്ങ് നയം അത്യാവശ്യമാവു കയാണെന്ന് മന്ത്രി ജെ

കൊല്ലം കോർപ്പറേഷനു വേണ്ടി നഗര ഗ്രാമ ആസൂത്രണ വകുപ്പ് തയാറാക്കിയ കരട് പാർക്കിങ്ങ് നയത്തിന്റെ അവതരണം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി കൊല്ലം ചെങ്കോട്ട കൊല്ലം തേനി റോഡുകൾക്ക് വീതി വർദ്ധി പ്പിക്കുന്നതിന്റെ സാധൃത പരിശോധിക്കുമെന്ന് കൊല്ലം നഗര വിക സന മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു എറണാകുളം ജില്ലയിലെ മഞ്ഞപ്ര പ്രാഥമികാരോഗൃ കേന്ദ്രം കൂടുംബാരോഗൃ കേന്ദ്രമാക്കി ഉയർത്തി സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമികാരോഗൃ കേന്ദ്രങ്ങളേയും കുടുംബാരോഗൃ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ

ശൈലജ പറഞ്ഞു കൊച്ചി ബിനാലെ ഫൌണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാ ചാരിയെ അന്തർദേശീയ ബിനാലെ അസോസിയേഷൻ ഡയറക്ടർ ബോർഡിലേക്ക് തെരഞ്ഞെടുത്തു കൊച്ചിയിൽ അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് യോഗമാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഏഴിമല നാവിക അക്കാദമിയുടെ സുരക്ഷാ ക്രമീകരണം വർദ്ധി പ്പിക്കാൻ ചുറ്റുമതിലിൽ സ്ഥാപിക്കുന്ന വൈദ്യുതി വേലിയുടെ ക്ഷമ താപരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കമാന്റിങ്ങ് ഓഫീ സർ അറിയിച്ചു